കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം അറുപതിനായിരത്തിൽ താഴെയായി

ഐ എസ് എല്ലിൽ ഇന്ന് ബെംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

രാജ്യത്തെ ഡിജിറ്റൽ രംഗത്ത് ഇന്ന് അനന്തമായ സാധ്യതകളാണുള്ളത്

അതോടൊപ്പം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം മികച്ച വിദ്യാഭ്യാസം കർഷകർക്ക് കൂടുതൽ അവസരങ്ങൾ ചെറുകിട ബിസിനസുകൾക്ക് മികച്ച വിപണി തുടങ്ങിയവ ഡിജിറ്റൽ സാങ്കേതികവിദ്യകളുടെ സഹായത്തോട്ട് നേടാനാകുന്ന ചില ലക്ഷ്യങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കുട്ടികളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടു പോകരുത് പേന കയ്യിൽ കരുതുക മാസ്ക് താഴ്ത്തി സംസാരിക്കരുത് ക്യൂവിൽ നിൽക്കുമ്പോഴും സാമൂഹിക അകലം പാലിക്കണം സാനിറ്റൈസർ ഉപയോഗിക്കണം ബൂത്തിനകത്ത് മൂന്ന് വോട്ടർമാർ മാത്രം കയറുക തുടങ്ങിയ നിർദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്

പ്രതിദിന കേസുകളെക്കാൾ കൂടുതലാണ് പ്രതിദിനം സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണം എന്നും മന്ത്രാലയം വ്യക്തമാക്കി

എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

ഏറ്റവും കൂടുതൽ രോഗമുക്തർ തിരുവനന്തപുരം ജില്ലയിലാണ്

അമേരിക്ക റഷ്യ ഇറ്റലി തുർക്കി തുടങ്ങിയ രാജൃങ്ങളിലും രോഗവ്യാപനം രൂക്ഷമായി തുടരുകയാണ്

സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഫൈസർ എന്നിവയ്ക്ക് ശേഷം രാജ്യത്ത് കോവിഡ് വാക് സിന് അനുമതി തേടുന്ന മൂന്നാമത്തെ കമ്പനിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലുമായി സഹകരിച്ചാണ് ഭാരത് ബയോടെക് വാക്സിൻ നിർമ്മിച്ചത്

പരീക്ഷണഘട്ടം കഴിഞ്ഞ് വിശദാംശങ്ങൾ വിലയിരുത്തിയ ശേഷമാകും അന്തിമാനുമതി നൽകുക

കേന്ദ്ര സംഘവും ആരോഗൃ വിദഗ്ദ്ധരും പ്രദേശത്ത് സന്ദർശനം നടത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

വൈകിട്ടോടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡോക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം

നിലവിൽ രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ വൃക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര ആരോഗൃമന്ത്രാലയം നിയോഗിച്ച മൂന്നംഗ സംഘം ഇന്ന് ഏലൂരിൽ സന്ദർശനം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപക പ്രോത്സാഹന ഏജൻസിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ

ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപക കേന്ദ്രമാക്കി ഉയർത്തുന്നതിനും വ്യാപാരം സുഗമമാക്കുന്നതിനും സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമാണ് പുരസ്കാരം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പൂർണ പിന്തുണ ശ്രീ

കോവിഡ് വാക്സിൻ സംബന്ധിച്ച വീഷയങ്ങളും കോവിഡാനന്തര സാമ്പത്തിക പുനരുജ്ജീവര് പദ്ധതികളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു

എല്ലിൽ ഇന്ന് ബെംഗളൂരു എഫ്

ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്

ഈ സീസണിൽ ജംഷഡ്പൂരിന്റെ ആദ്യ ജയമാണിത്

ഭരണ നിർവഹണ ചുമതലയുള്ളവരും പോലീസുദ്യോഗസ്ഥരും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടി ചില രാഷ്ട്രീയ പാർട്ടികളുടെ കാർഷിക നിയമങ്ങളിൽ ഉള്ള നിലപാട് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു

അതിനാൽ കോവിഡ് വ്യാപനം കൂടുതലുള്ള സ്ഥലങ്ങളിൽ വാക്സിൻ നിർബന്ധമാക്കേണ്ട സാഹചര്യം തള്ളിക്കളയാനാകില്ലെന്നും രോഗ പ്രതിരോധ വിഭാഗം മേധാവി കെയ്റ്റ് ഒബ്രിയൻ അറിയിച്ചു